സിബിഎസ്ഇ പത്താം ക്ലാസ് പരീക്ഷാ ഫലം ഇന്ന് കേരള രണ്ടാം വർഷ ഹയർസെക്കണ്ടറി വൊക്കേഷണൽ ഹയർ സെക്കണ്ടറി ഫലപ്രഖ്യാപനം ഉച്ചയ്ക്ക് രണ്ടിന്

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ എന്നിവർ സംയുക്തമായി യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ രഷ്ട്രീയ സുരക്ഷ വ്യാപാര നിക്ഷേപ സാമ്പത്തിക സഹകരണം സംബന്ധിച്ച് യോഗം അവലോകനം ചെയ്യും കോവിഡ് മഹാമാരി ഇരു വിഭാഗത്തിനും സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമാകും ഇന്തൃ യൂറോപ്യൻ യൂണിയൻ ഇരുപതാമത് സമ്മേളനമാണ് ഇത്

സ്കിൽ ഇന്ത്യ മിഷൻ രൂപീകരിച്ചതിന്റെ അഞ്ചാം പൂർവാർഷികം കൂടിയാണിന്ന്

യുവാക്കളിലെ നൈപുണ്യ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കു ന്നതിനുമാണ് സർക്കാർ സ്കിൽ ഇന്തൃ സംരംഭത്തിന് തുടക്കം കുറി ച്ചത് വിവിധ മേഖലകളിലുളള കോഴ്സുകൾ ഇതിലൂടെ നൽകി വരുന്നു

മഹാരാഷ്ട്രയിൽ നിലവിൽ ചികിത്സ യിലുളളത് ഒരുലക്ഷത്തിലധികം പേരാണ് ഇന്നലെ മാത്രം ഏഴായിര ത്തോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു

കർണാടകയിലും സ്ഥിതി രൂക്ഷമാവുകയാണ്

കോവിഡ് വ്യാപന ത്തെ തുടർന്ന് ബംഗളൂരു അർബൻ റൂറൽ ജില്ലകളിൽ ഒരാഴ്ചത്തേക്ക് ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്

സി എം

കോവിഡിനെതിരൂായ വാക്സിൻ വികസിപ്പിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ഐ സി എം ആർ ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗ്ഗവ പറഞ്ഞു

ആയിരം കോടി രൂപ ലാഭിക്കാൻ ഈ നടപടിയിലൂടെ സാധിക്കുമെന്നും കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ ബാങ്കിങ് പ്രവർത്തനം തടസ്സരഹിതമായിരിക്കാൻ സഹായിക്കുമെന്നും എസ്

ചെലവ് ചുരുക്കൽ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കൽ തൊഴിലാളികളെ പുനർവിനൃസിക്കൽ എന്നിവയിലാണ് ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ ഡിജിറ്റൽ ബാങ്കിംഗ് ആപ്പായ യോനോ വിപുലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്നലെ മാത്രം ഒൻപത് പേർ മരിച്ചു മിക്ക നദികളും കരകവിഞ്ഞ് ഒഴുകുകയാണ്

ജില്ലാ ഭരണകൂടത്തിന്റേയും ദേശീയ സംസ്ഥാന ദുരന്ത പ്രതിരോധ സ്നേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നൂണ്ട്ട് കാസിരംഗ ഉൾപ്പെടെ നിരവധി ദേശീയോദ്യാനങ്ങൾ പ്രളയ് ഭ്രീഷ്ക്ണിയിലാണ്

അതിർത്തിയിലെ ഫിംഗർ ഫോറിൽ നിന്നും പാങ്ഗോങ് സോ ഡീപസാംഗ് പ്രദേശം എന്നിവിടങ്ങളിൽ നിന്നും പൂർണ്ണമായി സൈനൃത്തെ പിൻവലിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഇന്നലത്തെ ചർച്ചയെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു

ബയോടെക്നോളജി വകുപ്പ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് എന്നിവ ഉൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്

ഇവർക്ക് ധനസഹായം വിതരണ ശൃംഖല ലോജിസ്റ്റിക്സ് തുടങ്ങി നിരവധി തരത്തിൽ പിന്തുണ ലഭ്യമാക്കും

കൂടുതൽ വിവരങ്ങളുമായി തിരുച്ചിറപ്പള്ളിയിൽനിന്നും ആകാശവാണി വാർത്താ വിഭാഗം മേധാവി ഡോ

ബി എസ്

ഉച്ചക്ക് രണ്ടിന് പൊതുവിദ്യാഭ്യാസ മന്ത്രി സി

ഫലം ഇൻഫർമേഷൻ പബ്ളിക് റിലേഷൻസ് വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പി